ചർച്ച തുടരുന്നു വോട്ടെടുപ്പ് അൽപ സമയത്തിനകം

പരാജയപ്പെടുത്തിയത് യു

എഫ് ന്റെ ലാൽ കൽപകവാടിയെ

ലിക്ക് രാജ്യത്തിന്റെ ആദരാഞ്ജലി

തുടർന്നേക്കുമെന്ന് സൂചന നൽകി കോൺഗ്രസ് പ്രവർത്തകസമിതി യോഗം

ചർച്ചക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മറുപടി നൽകുകയാണ്

പ്രതിപക്ഷത്തിന് അവരിൽ തന്നെ അവിശ്വാസം വന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

യുഡിഎഫിനുള്ളിലെ അസ്വസ്ഥത മറയിടാനുള്ള ശ്രമമാണ് അവിശ്വാസപ്രമേയമെന്ന് സംശയമുണ്ടെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു

തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് സംബന്ധിച്ചു പ്രമേയവും ധനകാര്യനടപടിക്രമങ്ങളും ഇന്ന് ചേർന്ന ഏകദിന സഭാസമ്മേളനം പാസാക്കി

തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് വിട്ട കേന്ദ്രസർക്കാർ നടപടി പിൻവലിക്കണമെന്ന് നിയമസഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കാതെയാണ് തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറിയതെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഡി എഫിലെ ലാൽ വർഗീസ് കൽപ്പകവാടിയെ

ക്കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തെ രണ്ട് അംശ്ങ്ങളും ബി ജെ പി അംഗം ഒ

ജെ പി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളെ പൊലീസ് അറസ്റ്റ് ചെയ്തു

ലോകത്തു കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ

മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും നിയമസഭ യിലെ അവിശ്വാസപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിലാണ് കണക്കുകൾ വൈകുന്നത്

രോഗനിയന്ത്രണ മാർഗ്ഗങ്ങൾ ഫലം കണ്ടോ എന്ന് തിരിച്ചുറിയാൻ സാധിക്കുന്നതിനാൽ സർവ്വെ വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഐ സി

നിശബ്ദ വ്യാപനത്തിലൂടെ രോഗം വന്നൂപ്പോയ്വരെയും അതിലൂടെ സ്വാഭാവിക പ്രതിരോധ ശ്രേഷി ആർജ്ജിച്ചവരെയും കണ്ടെത്താൻ സർവ്വെ വഴി സീധിക്കും

ജെ

നേതാവുമായ അരുൺ ജയ്റ്റ്ലിയുടെ ഒന്നാം ചരമ വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിർമല സീതാരാമൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു

നോട്ട് നിരോധനം ചരക്ക് സേവന നികുതി പോലുള്ള ചരിത്രപരമായ തീരുമാനങ്ങൾ ജെയ്റ്റ്ലി ധനമന്ത്രി ആയിരിക്കെയാണ് രാജ്യത്ത് നടപ്പാക്കിയത് തന്റെ പ്രിയ സുഹൃത്തിന്റെ അഭാവം ഏറെ വേദന ഉളവാക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭിപ്രായപ്പെട്ടു

ഐ സി സി സമ്മേളനം ചേരുന്നതുവരെ ശ്രീമതി സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്തു തുടരുമെന്ന് പ്രവർത്തക സമിതി അറിയിച്ചു

ബി ഐ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു

മുംബൈയിലെ സാന്റാക്രൂസിന് സമീപം ഡി

ഡി

കേസിൽ പിത്താനിക്ക് പുറമെ സുശാന്തിന്റെ പാചകക്കാരൻ നീരജ് സിംഗ് വീട്ടുജോലിക്കാരി ദീപേഷ് സാവന്ത് എന്നിവരെ ഇന്നലെ അഞ്ച് മണിക്കൂറിലധികം സി ബി

തന്റെ അഭിപ്രായത്തിൽ ഉറച്ച് നിൽക്കുന്നതായും വൃാജ മാപ്പപേക്ഷ മനസാക്ഷിയെ നിന്ദിക്കലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെ വിമർശിച്ചതിന്റെ അടിസ്ഥാന ത്തിലാണ് ശ്രീ

യിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതായി ധനമന്ത്രാലയം ഭവന നിർമ്മാണ മേഖലയിലും വലിയ ഇളവുകളാണ് ചരക്കുസേവന നികുതിക്ക് കീഴിൽ ലഭൃമാക്കിയിരിക്കുന്നത്

ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രി സർദോർ ഉമുർ സക്കോവ് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നിക്ഷേപ വിദേശ സാമ്പത്തിക ബന്ധങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ യോഗം വിലയിരുത്തി

പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണം പുരോഗമിക്കുന്നതിനിടെയാണ് കെല്ലിയാന്റെ രാജി

സംഘടനാ ബന്ധമുള്ള ഭീക്ർര്റിൽ നിന്നും ഭീഷണി ഉയർന്നതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ കനത്ത സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നാണ് സ്ഫോടനം നടത്തിയതെന്ന് ഫിലിപ്പൻസ് സൈനിക മ്യൂത്തങ്ങൾ പറഞ്ഞു

ഇത്തരം പദ്ധതികളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നും ഇത് പോലുള്ള വ്യാജ വാർത്തകൾ ക്കെതിരെ ജനങ്ങൾ ജാഗരൂകരായിരി ക്കണമെന്നും പി ഐ ബി ഫാക്ട് ചെക്കിലൂടെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി